കോൺഗ്രസ് സ്ഥാനാർഥി പട്ടിക ഈ ആഴ്ച അവസാന ത്തോടെ പ്രഖ്യാപിച്ചേക്കും

ഡി എഫിന്റെ പ്രചാരണ പരിപാടികൾ ശക്തമായി

ഈവർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നാളെ തുടങ്ങും

ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കരുതെന്ന നിർദേശത്തിനെതിരെ ബിജെപി രംഗത്തു വന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെ ട്ടായിരിക്കും പ്രധാനമായും ചർച്ചു മതവികാരത്തെ അനാവശ്യമായി തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിഴക്കരുതെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടു ണ്ട് മതസംഘർഷത്തിന് കാരണമാകുന്ന തരത്തിൽ പ്രവർത്തിക്കു ന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ ഹരിതച്ചട്ടം പാലിക്കുന്നതിനെ കുറിച്ചും ചർച്ച യുണ്ടായേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല്ല പ്രശ്നം പ്രചാരണ വിഷ യമാക്കരുതെന്ന മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസ്ർ ടിക്കാറാം മീണ യുടെ നിർദേശം യുക്തിസഹമല്ലെന്ന് ബ്രിജെപി സംസ്ഥാന ജന റൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ശബരി മല വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത നിലപാട് തെര ഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമെന്നും അതിൽ ആർക്കും ഇടപെടാനാ വില്ലെന്നും സുരേന്ദ്രൻ കോട്ടയത്ത് വ്യക്തമാക്കി ശബരിമല പ്രശ്നത്തിൽ മതപരമായ പരാമർശങ്ങളോ പ്രചാര ണങ്ങളോ നടത്തുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാ കുമെന്ന് ടിക്കാറാം മീണ തിരുവനന്തപുരത്ത് അറിയിച്ചിരുന്നു മത ത്തിന്റെ പേരിലോ മതവികാരം ഉന്നയിച്ചോ പ്രചാരണം നടത്തരു ത് എന്നും അദ്ദേഹം നിർദേശം നൽകിയിരുന്നു സുപ്രീംകോടതി യുടെ ശബരിമല വിധിക്കെതിരായോ മറ്റു മതങ്ങൾക്കെതിരെയോ നടത്തുന്ന പരാമർശങ്ങൾ മാത്രമേ പെരുമാറ്റച്ചട്ട ലംഘനമായി മാറൂ എന്ന് സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു

അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ച് ഡൽഹി യിൽ സ്ക്രീനിങ് കമ്മിറ്റി യോഗം ചേരും തുടർന്ന് കേന്ദ്ര തെര ഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അംഗീകാരത്തെടെയായിരിക്കും സ്ഥാനാർഥി പ്രഖ്യാപനം

മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ

സി പ്രസിഡന്റ് മുല്ല പ്പള്ളി രാമചന്ദ്രനും മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് അന്തിമ സ്ഥാനാർഥി പട്ടിക വൈകുന്നത്

എറണാ കുളത്തെയും പത്തനംതിട്ടയിലെയും സ്ഥാനാർഥികളെ സംബ ന്ധിച്ചും ഭിന്നത നിലനിൽക്കുന്നുണ്ട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എം ഏറ്റുമാനൂർ മുൻ എം

ഇന്നലെ രാത്രി വൈകിയാണ് പാർട്ടി ചെയർമാൻ കെ എം മാണി ചാഴികാടനെ സ്ഥാനാർഥിയാക്കിയ വിവരം വാർത്താകുറിപ്പിൽ അറിയിച്ചത് മണ്ഡലം ഭാരവാഹിക ളുടെയും പ്രവർത്തകരുടെയും വികാരം മാനിച്ചാണ് സ്ഥാനാർഥിയെ പ്രഖ്യാപിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു സീറ്റ് നിഷേധിച്ച നടപടി നീതിപൂർവമല്ലെന്ന് പി ജെ ജോസഫ് പ്രതികരിച്ചു കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് കോട്ടയത്തെ സ്ഥാനാർഥിയെ പ്രഖ്യാപിച്ചതെന്ന് അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു തീരുമാനം നേതൃത്വം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ജോസഫ് അറിയിച്ചു യുഡിഎഫുമായി ആലോചിച്ച് ഭാവി തീരു മാനം എടുക്കുമെന്ന് പി ജെ ജോസഫ് വെളിപ്പെടുത്തി സ്ഥാനാർഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച എൽ ഡി

ഇന്നലെ കോഴിക്കോട് മല പ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ ആറ്റിങ്ങൽ മണ്ഡലങ്ങ ളിലെ എൽ ഡി

വടകര യിൽ ഇന്നാണ് മണ്ഡലം കൺവെൻഷൻ വ്യാഴാഴ്ചക്ക് മുമ്പ് എല്ലാ മണ്ഡലങ്ങളിലേയും കൺവെൻഷൻ പൂർത്തിയാക്കി പ്രചാ രണം പൂർണതോതിൽ തുടങ്ങാനാണ് മുന്നണിയിലെ തീരുമാനം പല മണ്ഡലങ്ങളിലും സ്ഥാനാർഥികൾ ഇതിനകം തന്നെ വോട്ടർമാരെ നേരിൽകാണാനും പൊതുപരിപാടികളിൽ പങ്കെടു ക്കാനും തുടങ്ങിക്കഴിഞ്ഞു സ്ഥാനാർഥി നിർണ്യത്തിൽ ലഭിച്ച മുൻതൂക്കം പ്രചാരണ രംഗത്തും നിലനിർത്താനാണ് ഇടതുമുന്നണി ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ാഎൽഡി എഫിന്റെ വിജയത്തിന് ലോക് താന്ത്രിക് ജനതാദൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ്കുമാർ കോഴിക്കോട് പറ ഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെ ടുപ്പിലും അർഹമായ പ്രാതിനിധ്യവും മാന്യമായ പരിഗണനയും എൽ ഡി എഫ് നേതാക്കൾ ഉറപ്പുനൽകിയതായും അദ്ദേഹം അറി യിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിഷേധത്തിൽ പാർട്ടി യിൽ നീരസവും പ്രതിഷേധവും സ്വാഭാവികമാണ് എന്നാൽ തെര ഞ്ഞെടുപ്പ് സമയത്ത് മുന്നണിയെ വിജയിപ്പിക്കുന്നതിനാണ് മുൻഗ ണനയെന്ന് ശ്രേയാംസ്കുമാർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെപിയുടെ സ്ഥാനാർഥി നിർണയം അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നാൽ ചില സീറ്റുകളിൽ സ്ഥാനാർഥികളെ സംബന്ധിച്ച ധാരണ പൂർണമാകാ ത്തത് പട്ടിക വൈകാൻ ഇടയാക്കിയേക്കുമെന്നാണ് സൂചന പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി

ടി രമേശ് കോട്ടയത്ത് പറഞ്ഞു ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം അന്തിമ തീരുമാനമെടുക്കും കോട്ടയത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗം സ്ഥാനാർഥി നിർണയം സംബന്ധിച്ച് സംസ്ഥാനത്തെ മൂന്ന് മേഖലയിൽ നിന്ന് ലഭിച്ച വിവ രങ്ങൾ വിശകലനം ചെയ്തു ബിഡിജെഎസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് ബിജെപി അധ്യക്ഷൻ അമിത്ഷായുമായി ഡൽഹിയിൽ ചർച്ച നടത്തും തുഷാർ മത്സരിക്കുന്ന കാര്യത്തിൽ കൂടിക്കാഴ്ചയിൽ തീരുമാന മായേക്കുമെന്നാണ് പ്രതീക്ഷ റംസാൻ മാസത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതി നെതിരായ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി ഈദുൽഫിത്വർ ദിനത്തിലോ വെള്ളിയാഴ്ചക ളിലോ വോട്ടെടുപ്പ് നടത്തുന്നില്ലെന്നും റംസാൻ മാസത്തെ പൂർണ മായി ഒഴിവാക്കാനാവില്ലെന്നും കമ്മീഷൻ ന്യൂഡൽഹിയിൽ അറി യിച്ചു തൃണമൂൽ കോൺഗ്രസും ആംആദ്മി പാർട്ടിയുമാണ് ഈ വിഷയം ഉന്നയിച്ചത് മുത്തലാഖിനെതിരെ വീണ്ടും ഓർഡിനൻസ് പുറപ്പെടുവിച്ചതിനെ തിരെ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ സുപ്രീംകോടതി നിരസി ച്ചു ഇതുമായി ബന്ധപ്പെട്ട ബിൽ രാജ്യസഭ പാസ്സാക്കിയില്ലെന്ന് കാണിച്ചായിരുന്നു പരാതികൾ

ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ നാളെ തുടങ്ങും

ഗൾഫ് മേഖലകളിൽ ഒമ്പ തിടത്തും ലക്ഷദ്ധീപിലും പരീക്ഷ കേന്ദ്രങ്ങളുണ്ട്

വോട്ടെടുപ്പിനു ശേഷ മായിരിക്കും ഫലപ്രഖ്യാപനം

ഫൈനലിൽ ഇന്ത്യൻ എ

അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക മൂന്നാം സ്ഥാനം നേടി ബംഗുളൂരുവിൽ ഐഎസ്എൽ ഫുട്ബോൾ രണ്ടാംപാദ സെമി യിൽ ബംഗുളൂരു എഫ് സി ഇന്നലെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് നോർത്ത് ഈസ്റ്റ് യുനൈറ്റഡിനെ തോൽപ്പിച്ചു ഇന്ന് എഫ് സി ഗോവ മുംബൈ സിറ്റിയെ നേരിടും

പി ജലീൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മജിസ്ട്രേറ്റ്തല അന്വേഷണത്തിന് ഗവൺമെന്റ് ഉത്തരവിട്ടു ഇതിനായി ജില്ലാ കലക്ടർ എ

ആറ് മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദേശം പത്ത് ദിവസത്തെ ഉത്സവത്തിന് ശബരിമലയിൽ നടതുറന്നു ഉത്സ വത്തിന് തുടക്കം കുറിച്ച് അൽപസമയത്തിനകം തന്ത്രി കണ്ഠരര് രാജീവരര് സന്നിധാനത്ത് കൊടിയേറ്റും പ്രസാദ ശുദ്ധിക്രിയകൾ പൂർത്തിയായി ബിംബ ശുദ്ധിക്രിയകൾ ഇന്ന് നടക്കും

മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ബോധവത്കരണ വിഭാഗമായ സ്വീപ്പിന്റെ നേതൃത്വത്തിൽ വാഹനപ്രചാരണ റ്റാലി തുടങ്ങി കല ക്ട്രേറ്റ് പരിസരത്ത് ആരംഭിച്ച റാലി ജില്ലാ കലക്ടർ അമിത് മീണ ഫ്ളാഗ് ഓഫ് ചെയ്തു

പാലക്കാട് ടൌൺ തിരുച്ചിറപ്പള്ളി പാസഞ്ചർ ട്രെയിൻ ഇന്ന് ഈറോഡ് ജങ്ഷനിൽ ഒന്നേമുക്കാൽ മണിക്കൂർ പിടിച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചു

തൊടുപുഴ വെങ്ങല്ലൂർ ആരവല്ലിക്കാവ് ശ്രീദുർഗാ ഭദ്രദേവി ക്ഷേത്ര ത്തിലെ പൊങ്കാല ഇന്ന് നടക്കും നാളെയാണ് താലപ്പൊലി ഘോഷ യാത്രയും ദേശഗുരുതിയും മാഹിയിൽ വാഹനാപകടത്തിൽ രണ്ട് ബൈക്ക് യാത്രക്കാർ മരി ച്ചു ബൈക്ക് ലോറിക്കടിയിൽപെട്ടായിരുന്നു അപകടം കുഞ്ഞിപ്പ ള്ളിയിലെ ഉംനാസ് അമൽരാജ് എന്നിവരാണ് മരിച്ചത്

കണ്ണൂർ ചക്കരക്കല്ലിനടുത്ത് നാലാംപീടികയിൽ കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറിഞ്ഞ് കണ്ണൂർ മെഡിക്കൽ കോളജ് വിദ്യാർഥി മരി ച്ചു

കാറിൽ ഉണ്ടായിരുന്ന രണ്ട് വിദ്യാർഥികൾക്ക് പരിക്കേറ്റു